സത്യത്തിന്റെയും നീതിയുടെയും വിജയമെന്ന് പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി കർണാടകയിൽ കുമാരസ്വാമി മന്ത്രിസഭ ഇന്ന് വിശ്വാസവോട്ട് തേടും

സംസ്ഥാനത്ത് ഒരു വർഷത്തിനകം ഒരുലക്ഷം പട്ടയംകൂടി വിത രണം ചെയ്യുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ സംസ്ഥാന സബ്ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കോഴി ക്കോട് സെമിയിൽ ഇന്ത്യൻ നാവികസേനാ മുൻ ഉദ്യോഗസ്ഥൻ കുൽഭൂഷൺ ജാദവിന് ചാരവൃത്തികുറ്റം ആരോപിച്ച് പാക് സൈനികകോടതിവിധിച്ച വധശിക്ഷ അന്താരാഷ്ട്ര നീതിന്യായകോടതി തടഞ്ഞു വിധി കാര്യക്ഷമമായി പുന രവലോകനം ചെയ്യണമെന്നും കുൽഭൂഷണ് നയതന്ത്ര സഹായം ലഭ്യ മാക്കണമെന്നും വിധിയിൽ വൃക്തമാക്കി

വിധി നയതന്ത്ര രംഗത്ത് ഇന്ത്യ നേടിയ വൻ വിജയമായാണ് വിലയിരുത്തപ്പെടുന്നത് കുൽഭൂഷൺ ജാദവിനെ ചാര വൃത്തി ആരോപിച്ചാണ് പാകിസ്താൻ അറസ്റ്റ് ചെയ്തത്

സ്വന്തം അഭി ഭാഷകനെ തിരഞ്ഞെടുക്കാൻ അനുവാദം നൽകാതെയും നയതന്ത്ര സഹായം ലഭ്യമാക്കാതെയും കുൽഭൂഷൺ ജാദവിന്റെ അവകാശങ്ങൾ പാക് സൈനിക കോടതി ലംഘിച്ചതിനെ അന്താരാഷ്ട്ര നീതിന്യായകോ ടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു കോടതിവിധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു സത്യ ത്തിന്റെയും നീതിയുടെയും വിജയമാണിതെന്ന് അദ്ദേഹം ടിറ്ററിൽ കുറി ച്ചു ജാദവിന് നീതി ലഭിക്കുമെന്ന് തനിക്കുറപ്പുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഓരോ ഇന്ത്യക്കാരന്റെയും സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമായി തന്റെ ഗവൺമെന്റ് എപ്പോഴും പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി പറ ഞ്ഞു ഇന്ത്യയുടെ നിലപാട് പൂർണമായും ശരിവയ്ക്കുന്നതാണ് വിധിയെന്ന് വിദേശകാര്യമന്ത്രാലയം അഭിപ്രായപ്പെട്ടു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിർദ്ദേശങ്ങൾ ഉടൻ പാകിസ്താൻ നടപ്പാക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ ന്യൂഡൽഹിയിൽ ആവ ശ്യപ്പെട്ടു സത്യത്തിന്റെ വിജയമാണ് വിധിയെന്ന് ആഭ്യന്തരമന്ത്രിയും ബി

അധ്യക്ഷനുമായ അമിത്ഷാ വിശേഷിപ്പിച്ചു കുൽഭൂഷൺ ജാദവ് ഉടൻ ഇന്ത്യയിൽ തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി രാഹുൽഗാന്ധി പറഞ്ഞു വിധിയുടെ പശ്ചാത്തലത്തിൽ പാകിസ്താൻ നിയമമനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് പാകിസ്താൻ വിദേശകാര്യമന്ത്രാലയം ഇസ്ലാമാ ബാദിൽ അറിയിച്ചു

ഡി

മന്ത്രിസഭ നിയമസഭയിൽ ഇന്ന് വിശ്വാസവോട്ട് തേടും

കുമാരസ്വാമി നിയമസഭയിൽ വിശ്വാ സപ്രമേയം അവതരിപ്പിക്കും രാജിവെച്ച വിമത എം

മാരെ സമ്മേ ളനത്തിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കരുതെന്ന സുപ്രീംകോടതി ഉത്ത രവ് ഗവൺമെന്റിന്റെ ഭാവി ആശങ്കയിലാഴ്ത്തിയതായി റിപ്പോർട്ടുണ്ട് രാജിയിൽ ഉറച്ചുനിൽക്കുമെന്നും സമ്മേളനത്തിൽ പങ്കെടുക്കില്ലെന്നും മുംബൈയിൽ കഴിയുന്ന വിമത എം

എ മാർ കോടതി വിധിക്കു ശേഷം വ്യക്തമാക്കി അതേസമയം ഇവരോടൊപ്പം രാജിവെച്ച രാമലിം ഗറെഡ്ഡി രാജി പിൻവലിക്കുമെന്നും നിയമസഭയിൽ ഗവൺമെന്റിന് അനു കൂലമായി വോട്ട് ചെയ്യുമെന്നും ബെംഗളുരുവിൽ അറിയിച്ചു

മാരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് സ്പീക്കർക്ക് കത്ത് നൽകിയിട്ടുണ്ട് കക്ഷിരഹിത അംഗം ആർ ശങ്കറും ഇതിൽ ഉൾപ്പെടുന്നു വിമത എം

ഡി എസ്

ഗവൺമെന്റ് താഴെപോകും എന്ന പ്രതീക്ഷയിൽ സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണത്തിന് ബി

ശ്രമം തുടങ്ങി യതായും റിപ്പോർട്ടുണ്ട്

നിയമം കൂടുതൽ ശക്തമാക്കുന്നതിനും നിയ മലംഘകർക്കെതിരെ കർശന നടപടി ഉറപ്പുവരുത്തുന്നതിനുമാണ് ഭേദ ഗതികൾ കൊണ്ടുവരുന്നത്

പാപ്പരത്വ നിയമത്തിൽ ഏഴ് ഭേദഗതികൾ കൊണ്ടുവരാനും മന്ത്രിസഭ തീരുമാനിച്ചു

മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് പകരമായാണ് ദേശീയ മെഡിക്കൽ കമ്മി ഷൻ രൂപീകരിക്കുന്നത് ബിൽ കഴിഞ്ഞ ലോക്സഭയിൽ അവതരിപ്പിച്ചി രുന്നെങ്കിലും പാസാക്കിയിരുന്നില്ല നടപ്പ് സമ്മേളനത്തിൽ ബിൽ അവ തരിപ്പിക്കുമെന്ന് ഔദ്യോഗിക കേന്ദ്രങ്ങൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു

തിരുവനന്തപു രത്ത് ജില്ലാ കളക്ടർമാരുടെയും റവന്യു ഉദ്യോഗസ്ഥരുടെയും അവലോ കനയോഗത്തിൽ പങ്കെടുത്തശേഷം മാധ്യമങ്ങളോടു സംസാരിക്കുകയാ യിരുന്നു അദ്ദേഹം

അടുത്ത മേയ് മാസത്തിനുള്ളിൽ ബാക്കിയുള്ളവ വിതരണം ചെയ്യും

ഇടുക്കി എറണാകുളം തൃശൂർ പത്തനംതിട്ട പാലക്കാട്ട് ജില്ലകളിലാണ് പ്രധാനമായും പട്ടയം വിതരണം ചെയ്യുന്നതെന്നും മന്ത്രി അറിയിച്ചു ലാൻഡ് ട്രൈബ്യൂണലുകളിൽ നിലവിലെ കേസുകളിൽ ഉടൻ പരിഹാരം കാണുമെന്നും കേസുകൾ തീർപ്പാക്കുന്നതിന് വടക്കൻ ജില്ലകളിൽ ആറ് സ്പെഷ്യൽ ട്രൈബ്യൂണലുകൾ അനുവദിച്ചിട്ടുണ്ടെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു

ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് ആർ എസ് എസിന് ചോർത്തി നൽകിയെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പറഞ്ഞ മുഖ്യമന്ത്രി ആ പദവിക്ക് യോജിച്ച ആളല്ല എന്നാണ് തെളിയിക്കുന്നതെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി

പരീ ക്ഷയുടെ റാങ്ക് പട്ടികയിൽ എസ്

നേതാക്കൾ എത്തിയ സംഭ വത്തിൽ സി

ഐ അന്വേഷണം വേണമെന്നും മധ്യപ്രദേശിലെ വ്യാപം അഴിമതിക്കേസിന് സമാനമായ സംഭവമാണ് സംസ്ഥാനത്ത് ഉണ്ടാ യിരിക്കുന്നതെന്നും പ്രതിപക്ഷനേതാവ് പറഞ്ഞു

ചെയർമാനെ സ്ഥാനത്തുനിന്ന് മാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ഇന്ന് മലപ്പുറം വയനാടിനെയും എറണാകുളം പത്തനംതിട്ടയെയും നേരിടും ഞായറാഴ്ച വൈകീട്ട് മൂന്നരയ്ക്കാണ് ഫൈനൽ

ഇന്ത്യ ഗ്രൂപ്പ് ഇയിലാണ് മത്സരിക്കുക നിലവിൽ ഏഷ്യൻകപ്പ് ജേതാക്കളായ ഖത്തർ ഉൾപ്പെടുന്ന കരുത്തരുടെ ഗ്രൂപ്പാ ണിതെന്ന് ഇന്ത്യൻ കോച്ച് ഇഗോർ സ്റ്റിമാക് പറഞ്ഞു ഖത്തറിന് പുറമെ ഒമാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശുമാണ് ഗ്രൂപ്പിൽ ഇടംനേടിയ ടീമുകൾ

ജക്കാർത്തയിൽ ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷി പ്പിൽ ഇന്ത്യൻ താരങ്ങളായ പി

സിന്ധുവും കിഡംബി ശ്രീകാന്തും രണ്ടാം റൌണ്ടിലെത്തി

ജപ്പാന്റെതന്നെ കെന്റ നിഷിമോട്ടൊയെയാണ് ശ്രീകാന്ത് അടിയറവ് പറയിച്ചത് ഇടുക്കി മലപ്പുറം ജില്ലകളിൽ ഇന്ന് അതി തീവ്രമഴയ്ക്ക് സാധ്യതയു ണ്ടെന്ന് കേന്ദ്ര കാല്ലാവസ്ഥാ നിരീക്ഷണവകുപ്പ് അറിയിച്ചു

നാളെ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും മറ്റന്നാൾ ഇടുക്കി എറ ണാകുളം ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗവൺമെന്റ് സംവിധാനങ്ങളും പൊതുജനങ്ങളും ജാഗ്രത പാലിക്കാനും ക്യാമ്പുകൾ തയ്യാറാക്കുന്നതുൾപ്പെടെ മുന്നൊരുക്കങ്ങൾ നടത്താനുമാണ് റെഡ് അലേർട്ട്കൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ അതി തീവ്ര മായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ തുട ങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധൃത വർധിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്ന് എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലും നാളെ എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്

പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തെക്കുറിച്ച് അമ്പേഷിച്ച ജസ്റ്റിസ് പി

ഗോപിനാഥൻ കമ്മിഷൻ മുഖ്യമന്ത്രി പിണറായി വിജ യന് റിപ്പോർട്ട് കൈമാറി

റിപ്പോർട്ട് മന്ത്രിസഭ പരിഗണിക്കേണ്ടതിനാൽ ഉള്ളടക്കം വെളി പ്പെടുത്താനാവില്ലെന്ന് കമ്മിഷൻ പറഞ്ഞു അക്രമത്തിനും അനീതിക്കുമെതിരെ സമരം ചെയ്യുന്നവരെ പോലീ സിനെ ഉപയോഗിച്ച് അടിച്ചൊതുക്കിയും കള്ളക്കേസ് ചുമത്തിയും നിർവീ ര്യമാക്കാമെന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നീക്കം വിലപ്പോവില്ലെന്ന് മുസ്ലിംലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ

സംഘടിപ്പിച്ച ചലോ സെക്രട്ടേറിയറ്റ് മാർച്ചിനുനേരെ പോലീസ് നടത്തിയ നരനായാട്ട് ജനാധിപത്യ കേരള ത്തിന് അപമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു ജനാധിപത്യ സമരങ്ങളെ അടിച്ചമർത്തുന്ന നീക്കത്തിനെതിരെ ഇന്ന് പഞ്ചായത്ത് മുനിസിപ്പൽ ത ലങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുമെന്നും മജീദ് അറിയിച്ചു വിദ്യാർഥി സംഘർഷത്തെത്തുടർന്ന് അടച്ചിട്ട തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് തിങ്കളാഴ്ച തുറക്കുമെന്ന് അധികൃതർ അറി യിച്ചു കോളേജ് തുറക്കുന്നതിന് മുന്നോടിയായി കാമ്പസിലെ കൊടി തോരണങ്ങളും ചുവരെഴുത്തുകളും മാറ്റിത്തുടങ്ങി കോളേജ് വിദ്യാഭ്യാ സവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി

ബ്രണ്ണൻ കോളേജിൽ എ

സ്ഥാപിച്ച കൊടിമരം പ്രിൻസിപ്പാൾ എടുത്തു മാറ്റിയെന്നാരോപിച്ച് സംഘപരിവാർ സംഘടനകൾ പ്രിൻസിപ്പാളിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി

കോളേജിൽ നടന്ന ഒരു അനുസ്മരണ പരിപാടിയുടെ ഭാഗമായാണ് എ

വി പി കൊടിമരം സ്ഥാപിച്ചത് എന്നാൽ പരിപാടിക്ക് ശേഷം മാറ്റാമെന്ന ഉറപ്പ് പാലിക്കാത്തതിനാലാണ് പ്രിൻസിപ്പാൾ കൊടിമരം മാറ്റിയതെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു അധ്യാത്മ രാമായണം ഭക്തിയുടെമാത്രമല്ല ജീവി തദർശനത്തിന്റെ ഭാവംകൂടി ഉൾക്കൊണ്ടതാണെന്ന് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ എം

കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി മേഖലയിൽ മലമ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകി ഇരിട്ടി മേഖലയിൽ മൂന്നു പേർക്ക് മലമ്പനി ബാധിച്ചതായാണ് റിപ്പോർട്ട് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് ബീച്ചും ധർമ്മടം തുരുത്തുമായി ബന്ധപ്പെട്ട ടൂറിസം വികസന രൂപരേഖ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ അവതരിപ്പിച്ചു ജില്ലയുടെ ടൂറിസം വികസനത്തിന് കുതിപ്പേകുന്നതാകും പദ്ധതി ഇതിന്റെ ഭാഗമായി രണ്ടു കിലോമീറ്റർ ദൂരത്തിൽ സന്ദർശകർക്ക് വ്യത്യസ്തമായ കാഴ്ചാനുഭവങ്ങൾ ഒരുക്കും സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് സോഷ്യൽ ഇന്റേൺഷിപ്പ് നട പ്പിലാക്കി പുതിയൊരു വികസന മാതൃക സൃഷ്ടിക്കണമെന്ന് മന്ത്രി ഡോ

ജലീൽ പറഞ്ഞു തിരുവനന്തപുരത്ത് എ